ബ്രക്സിറ്റ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത് നീട്ടിവയ്ക്കാൻ പ്രധാനമന്ത്രി തെരേസ് മേയ്ക്കു മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ബിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി

ഡൽഹി ക്യാപിറ്റൽസ് ഇന്ന് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

സൂക്ഷ്മപരിശോധന നാളെ ആരംഭിക്കും ഈ മാസം എട്ടാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം

കേരളത്തിനു പുറമെ ഗുജറാത്ത് ഗോവ ദാദ്രാനഗർ ഹവേലി ദാമൻ ദിയു പുതുച്ചേരി എന്നിവിടങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും

ഗോവയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ഗ്റ്ജ്റാത്തിലെ അഞ്ചിടത്തും ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നിടക്കും

ഇന്നലെ രാത്രി ഒൻപതു മണിക്ക് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയ രാഹുൽ ഗാന്ധിക്കും എ ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിക്കും യു

എഫ് നേതാക്കളും പ്രവർത്തകരും സ്വീകരണം നൽകി രാവിലെ ഹെലികോപ്ടർ മാർഗ്ഗം കൽപ്പറ്റ എസ്

ജെ സ്കൂൾ മൈതാനത്ത് ഇറങ്ങുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും രണ്ടു കിലോമീറ്റർ ദൂരം റോഡ് ഷോ നടത്തും

ശ്രീ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് എൻ

മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലും ശ്രീ രാഹുൽഗാന്ധി ഇന്ന് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും

ജംജഹർപൂർ സുപോൾ അറാറിയ മഥേപുര ഖഗാറിയ എന്നിവ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളാണ് മൂന്നാംഘട്ട വോട്ടെടുപ്പിന് തയ്യാറെടുക്കുന്നത്

പാർട്ടി അദ്ധ്യക്ഷൻ ഉപേന്ദ്ര ഖുഷ്വാഹ ഉജ്ജ്യാർപൂർ കാരാഘട്ട് എന്നീ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടും

ഗുവഹാത്തി ഭൂബ്രി ബർപേട്ട കൊക്രാജ്റാർ എന്നിവ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലങ്ങളാണ് മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്

ഉഞ്ജഹ മാനവാഡർ ജാംനഗർ റൂറൽ ദ്രാൻഗാധ്ര എന്നിവയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ഉപ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ

ബനസ്കന്ദയിൽ നിന്നും പാർതിഭായ് ഭട്ടോൽ അമ്മേലിയിൽ നിന്നും പരേഷ് ധനാനി സൂറത്തിൽ നിന്നും അശോക്ട് ആദ്ദേവാഡ എന്നിവരും മത്സരിക്കും

മുൻ മന്ത്രിയുമായ രാം സകൽ ഗുർജറും മുൻ എം

ജെ

ഇന്നലെ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു പ്രവേശനം

കൂടാതെ രാഷ്ട്രീയ ലോക് സമ്ദ പാർട്ടി നേതാവ് ശിവരാജ്സിങ്ങും ഇന്നലെ ബി ജെ

ഇതിനായി ആർ

ഐ ഗവർണർ ശക്തികാന്തദാസിന്റെ നേതൃത്വത്തിൽ ആറംഗ പണനയ സമിതി തുടർച്ചയായ മൂന്നാം ദിവസമായ ഇന്നും മുംബൈയിൽ യോഗം ചേരും സാമ്പത്തിക വളർച്ച ലക്ഷ്യം വച്ച് പലിശ നിരക്കിൽ കുറവ് വരുത്താൻ ആർ

ഐ തുനിഞ്ഞേക്കുമെന്നാണ് വിലയിരുത്തൽ ഉപഭോക്തൃ വില സൂചികയിലെ വർദ്ധനവും ഈ നടപടിയിലേക്ക് കടക്കാൻ ആർ

ഇ

നിഷ്ക്രിയ ആസ്തികളുടെ കാര്യത്തിൽ പുതിയ നയം രൂപീകരിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു നിഷ്ക്രിയ ആസ്തികളുടെ തിരിച്ചടവിന്റെ ക്ടൂര്യത്തിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കേണ്ടത് ദീർഘകാല വികസനത്തിന് അത്യാവശ്യമാണെന്നീശ്രീ അമിതാഭ് കാന്ത് അറിയിച്ചു ചങ്ങാത്ത മുതലാളിത്തും അവസാനിപ്പിക്കാനായി ഗവൺമെന്റും റിസർവ്വ് ബാങ്കു്ക് നിർവധി സാമ്പത്തിക അച്ചടക്ക നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി

ഇന്ത്യയിലും വിദേശത്തുമുള്ള വൻകിട കുത്തക കമ്പനികളിൽ നിന്നും രാഷ്ട്രീയ കക്ഷികളുടെ അക്കൌണ്ടുകളിലേക്ക് വൻതുക എത്തുമെന്നും അത് തടയണമെന്നുമാണ് ഹർജിക്കാരുടെ വാദം കഴിഞ്ഞവർഷം ഫെബ്രുവരിയിൽ സി

എം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതികരണം ആരാഞ്ഞു ഏകപക്ഷീയവും വിവേചനപരവുമായാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെന്നാരോപിച്ചായിരുന്നു ഹർജി രാഷ്ട്രീയ കക്ഷികളുടെ ഫണ്ട് ശേഖരണം സുതാര്യമാക്കാനാണ് ഇലക്ടറൽ ബോണ്ട് കൊണ്ടുവന്നതെന്ന് കേന്ദ്രം മറുപടി നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞമാസം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി

ബ്രിക്സിറ്റ് കരാർ ബ്രിട്ടീഷ് പാർലമെന്റിൽ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നതിനിടെയാണിത് ഇയു പാർലമെന്റ് ജസ്റ്റിസ് കമ്മറ്റി നേരത്തെ നിയമത്തിന്റെ കരടിന് അംഗീകാരം നൽകി

ഈ നിയമത്തിൽ മാറ്റം വരുത്താനാണ് ആലോചന ജിബ്രാൾട്ടർ മേഖലയെ ചൊല്ലിയുള്ള തർക്കമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം പ്രത്യേക മേഖലയായാണ് യു എൻ

ബ്രിട്ടന്റെ ഭാഗമെന്നാണ് ബ്രിട്ടന്റെ അവകാശവാദം

ലേബർ പാർട്ടി അംഗം യുവേറ്റേ കൂപ്പർ അവതരിപ്പിച്ച ബില്ലാണ് ഹൌസ് ഓഫ് കോമൺസ് ഒരു ദിവസംകൊണ്ട് പാസ്സാക്കിയത് എന്നാൽ ബിൽ നിയമമാക്കാൻ ഉപരിസഭ കൂടി ഇത് അംഗീകരിക്കേണ്ടതുണ്ട്

ഇന്ന് ഡൽഹീയ്ടില്ലെ ഫിറോസ് ഷാ കോട്ട്ലാ മൈതാനിയിൽ നടക്കുന്ന് മൽസരത്തിൽ ഡൽഹി ക്യാപ്പിറ്റൽസ് സൺ റൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും രാത്രി എട്ട് മണിക്കാണ് മൽസരം